വിജ്ഞാപനമായി ആദ്യദിനം സംസ്ഥാനത്ത് സമർപ്പിക്കപ്പെട്ടത് മൂന്ന് പത്രികകൾ

എ

ഐ

കൂടുതൽ വിവരങ്ങളുമായി കവിതസുനു

പത്രികകൾ സമർപ്പിക്കാനുള്ള അവസാനതീയതി ഏപ്രിൽ നാലാണ് അഞ്ചാം തീയതിയാണ് സൂക്ഷ്മ പരിശോധന

ഉത്തർപ്രദേശിലെ മീററ്റിൽ തെരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം ഏല്ലാവർക്കുമൊപ്പം എല്ലാവർക്കും വികസനം എന്നതിലൂടെ പുതിയ ഇന്ത്യയ്ക്കായുള്ള പ്രവർത്തനമാണ് ഗവൺമെന്റ് നടത്തിയതെന്നും അദ്ദേഹം പറഞ്ഞു പ്രതിപക്ഷത്തിന് വികസനകാര്യത്തിൽ വ്യക്തമായ നയമില്ലെന്നും ബി

ഉത്തരാഖണ്ഡിലെ രുദ്രാപൂരിലും അദ്ദേഹം തെരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധ ചെയ്തു

പ്രധാനമന്ത്രിയും മുതിർന്ന ബി ജെ

ഉത്തർപ്രദേശിന്റെ കിഴക്ക് ഭാഗത്തിന്റെ ചുമതലയാണ് ശ്രീമതി പ്രിയങ്കയ്ക്കുള്ളത് റായ്ബറേലിയിൽ അവർ പാർട്ടി പ്രവർത്തകരുമായി കൂടിക്കാഴ്ച നടത്തി

ഐ എം

പട്ടികജാതി പട്ടികവർഗ്ഗ വിഭാഗത്തിൽപ്പെടുന്നവർക്ക് സ്ഥകാര്യ മേഖലയിൽ ഉദ്യോഗത്തിനും വിദ്യാഭ്യാസത്തിനും സംവരണം ഏർപ്പെടുത്തുമെന്നും സി

ഐ എം ് ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ന്യൂഡൽഹിയിൽ പുറത്തിറക്കിയു പ്രകടന പത്രികയിൽ പറയുന്നു

അസമിലെ കാലിയബോറിൽ അസം ഗണപരിഷത്തിന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ബംഗ്ലാദേശിൽ നിന്നുള്ള അനധികൃത കുടിയേറ്റക്കാരെ ഒഴിവാക്കാനാണ് ബിജെപി ഗവൺമെന്റ് ശ്രമിച്ചത് എന്നാൽ വോട്ടിന് വേ ി ഇവരെ പിന്തുണയ്ക്കുന്ന നിലപാടാണ് കോൺഗ്രസിന്റെത് എൻഡിഎ ഗവൺമെന്റ് മൂന്ന് ലക്ഷം കോടി രൂപയാണ് അസമിന്റെ വികസനത്തിനുവേ ി ചെലവിട്ടത്

താഴ്വരയിലെ ജനങ്ങളുടെ സ്വൈരജീവിതം ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമാണെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു ഭീകരപ്രവർത്തനത്തിനു ലഭിച്ചിരുന്ന ധനസഹായം ഇല്ലാതാക്കാൻ എൻ ഐ എ ക്കു കഴിഞ്ഞിട്ടു ്്

വികസന പദ്ധതികളിലൂടെ ആയിരക്കണക്കിനാളുകൾക്ക് തൊഴിൽ നൽകാനും കഴിഞ്ഞിട്ടു ്

ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേയ്സ് സെന്ററിൽ നിന്നും പി എസ് എൽ വി

മൂന്ന് വ്യത്യസ്ത ഓർബിറ്റുകളിലായി ഉപഗ്രഹം വിക്ഷേപിക്കാനുള്ള കഴിവ് പി

ലിത്തേനിയ സ്പെയിൻ സ്വിറ്റ്സർലന്റ് അമേരിക്ക എന്നീ രാജ്യങ്ങളുടെ ഉപഗ്രഹങ്ങളും ഇതിൽപ്പെടും

ഒരാഴ്ചകൂടി തൽസ്ഥിതി തുടരുമെന്നതിനാൽ ദുരന്ത നിവാരണ അതോറിറ്റി അതീവ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു സംസ്ഥാനത്ത് ഇന്ന് മാത്രം ഇരുപതിലധികം പേർക്കാണ് സൂര്യാഘാതം ഏറ്റത് കടുത്ത ചൂടിന്റെ പശ്ചാത്തലത്തിൽ എല്ലാ ജില്ലകളിലും കുടിവെള്ള ലഭ്യത ഉറപ്പാക്കാൻ ജില്ലാ കളക്ടർമാർക്ക് ചീഫ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം നിർദ്ദേശം നൽകി

ഗവൺമെന്റ് ഇടപാടുകൾ നടക്കുന്ന ബാങ്കുകളുടെ എല്ലാ ശാഖകളും ഞായറാഴ്ച രാവിലെ എട്ടുമുതൽ വൈകിട്ട് ആറുവർ പ്രവർത്തിക്കണമെന്നാണ് നിർദ്ദേശം വർഷാന്ത്യം ക്സോസിംഗിന്റെ ഭാഗമായി ഗവൺമെന്റ് രസീത് പേമെന്റ് ഇടപാടുകൾ നടത്തുന്നതിനുവേ ിയാണിത് ഏപ്രിൽ മാസത്തെ ആദ്യ പ്രവൃത്തിദിവസ്മായി ഏപ്രിൽ ഒന്നി ന് ട്രഷറികളിൽ ഇടപാട് ഉ ായിരിക്കില്ലെന്ന് ട്ര്ഷറി ഡയറ ക്ടർ അറിയിച്ചു

വെസ്റ്റ് ഇൻഡീസ് താരം ആൻഡ്രൂ റസ്സലിന്റെ ഓൾ റൌ ് പ്രകടനമാണ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ വിജയത്തിലെത്തിച്ചത്

അതുവരെ അറസ്റ്റു തടഞ്ഞിട്ടു ് കള്ളപ്പണം വെളുപ്പിക്കൽ കേസിലാണ് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയുടെ സഹോദരീ ഭർത്താവായ റോബർട്ട് വാദ്രയെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യാൻ പ്രത്യേക ജഡ്ജി അരവിന്ദ് കുമാർ മുമ്പാകെ എൻഫോഴ്മെന്റ് ഡയക്ടറേറ്റ അപേക്ഷ നൽകിയത്

സമാപന സമ്മേളനം ഇന്ന് വൈകുന്നേരം ദർബാർ ഹാൾ മൈതാനത്ത് നടക്കും

മഹാരാഷ്ട്രവാദി ഗോമന്തക് പാർട്ടിയുടെ പ്രതിനിധിയായ ശ്രീ സൂധിൻ ധാവ്ലിക്കറെ നീക്കിയ ഒഴിവിലാണ് പുതിയ നിയമനം എം ജി പി യുടെ മൂന്ന് പ്രതിനിധികളിൽ ശ്രീ മനോഹർ അജ്ഗാവോങ്കർ ഉൾപ്പെടെ ര ുപേർ കഴിഞ്ഞ ദിവസം ബിജെപിയിൽ ചേർന്നിരുന്നു നിലവിൽ ശ്രീ ധാവ്ലിക്കർ മാത്രമാണ് എം